കെ ശൈലജ

ത ജലജീവൻ മിഷൻ പദ്ധതിയിൽ കാസർകോട് ജില്ലയിലെ ഗ്രാമീണ വീടുകളിൽ ശുദ്ധജലമെത്തിക്കും

രോഗവ്യാപനം വർധിച്ച് പ്രതിദിനം രണ്ടായിരം കേസുകളിൽ അധികം വരുന്ന സ്ഥിതിയുണ്ടായാൽ ആരോഗ്യ സംവിധാനങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാകും സ്ഥിതി ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ രോഗപ്പകർച്ചയുടെ കണ്ണി പൊട്ടിക്കാൻ ജനങ്ങൾ കൂടുതൽ ഉത്സാഹം കാണിക്കണമെന്നും മന്ത്രി സ്വകാര്യ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് കൊവിഡ് പരിശോധനയുടെ എണ്ണം വർധിപ്പിച്ചതായി മന്ത്രി അറിയിച്ചു രോഗസാധ്യത കൂടുതലുള്ളവർക്കായിരിക്കും പരിശോധനയിൽ മുൻഗണന നൽകുക

സംസ്ഥാന വ്യാപകമായി ലോക്ഡൌൺ ഏർപെടുത്തുന്നത് വലിയ പ്രയാസങ്ങൾക്കിടയാക്കുമെന്നും മന്ത്രി പറഞ്ഞു ദേദ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മൂന്ന് പേർകൂടി മരിച്ചതായി റിപ്പോർട്ട് കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന രണ്ടു പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചു മലപ്പുറം സ്വദേശി മുഹമ്മദ് കോഴിക്കോട് പള്ളിക്കണ്ടി സ്വദേശി ആലിക്കോയ എന്നിവരാണ് മരിച്ചത് മറ്റ് അസുഖങ്ങളാണ് ഇവരുടെ മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി

കൊവിഡ് പ്രാഥമികതല ചികിത്സാകേന്ദ്രമായ ജില്ലാ ആശുപത്രിയിൽ കൊല്ലം ചികിത്സയിലായിരുന്നു ഇവർ

പ്രമേഹം ഹൈപ്പർടെൻഷൻ തുടങ്ങിയ അസുഖങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു

മാനന്തവാടി കണിയാരം പാലാകുളിയിലെ പ്രസാദ് ആണ് മരിച്ചത് രുമ സംസ്ഥാനത്ത് കൊവിഡ് രോഗികളെ വീടുകളിൽ ചികിത്സിക്കാൻ അനുമതി നൽകി പുതിയ മാനദണ്ഡം ആരോഗ്യവകുപ്പ് പുറത്തിറക്കി

ഇത്തരക്കാർക്ക് നിരീക്ഷണത്തിൽ കഴിയുന്നതിന്റെ പത്താം ദിവസം കൊവിഡ് രോഗ ബാധ പരിശോധിക്കാൻ ആന്റിജൻ ടെസ്റ്റ് നടത്തും പോസിറ്റീവാണെങ്കിൽ തുടർന്നും നിരീക്ഷണത്തിൽ കഴിയണം നെഗറ്റീവാണെങ്കിൽ അടുത്ത ഏഴ് ദിവസം കൂടി നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരും രുമ മലപ്പുറം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായി തയ്യാറാക്കിയ സഞ്ചരിക്കുന്ന കോവിഡ് പരിശോധനാ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു

രോഗവ്യാപന പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് രോഗലക്ഷണങ്ങളുള്ളവരുടെ സ്രവം ശേഖരിച്ച് പരിശോധനയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പി സി ആർ ലാബിൽ എത്തിക്കുകയാണ് യൂണിറ്റ് ചെയ്യുക രുദ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് സാമൂഹിക മത കൂട്ടായ്മക്ക് സംസ്ഥാന ഗവൺമെന്റ് അനുമതി നൽകി എന്നാരോപിച്ച് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി കേന്ദ്ര ഗവൺമെന്റ് മാർഗ രേഖയ്ക്ക് വിരുദ്ധമായി നൂറു പേർക്കു വരെ മത കൂട്ടായ്മകൾക്ക് അനുമതി നൽകിയതായി ആരോപിച്ച് രണ്ട് അഭിഭാഷകരാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കേന്ദ്രമാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് ഉത്തരവിറക്കിയതെന്നും കേന്ദ്ര നിർദേശത്തിൽ ആരാധനയ്ക്ക് വിലക്കില്ലെന്നും ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു ഈ വാദം അംഗീകരിച്ചാണ് ചീഫ് ജസ്റ്റിസ് നേതൃത്വം നൽകുന്ന ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത്

മറ്റന്നാൾ നിലവിൽ വരുന്ന അൺലോക്ക് മൂന്ന് കാലയളവിൽ കണ്ടെയിൻമെന്റ് സോണിൽ ഒഴികെ കൂടുതൽ ഇളവുകൾ അനുവദിക്കും രാത്രികാല കർഫ്യൂ പിൻവലിക്കും യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ജിംനേഷ്യങ്ങളും അടുത്തമാസം അഞ്ചു മുതൽ തുറന്നു പ്രവർത്തിക്കാം

രേര വിശുദ്ധ ഹജ്ജ് കർമത്തിലെ സുപ്രധാന ചടങ്ങായ അറഫാ സംഗമം അൽപ്പസമയത്തിനകം ഹാജിമാർ അറഫയിലെത്തി ഇന്നലെ തമ്പുകളുടെ നഗരമായ മിനായിൽ രാപ്പാർത്ത ഹാജിമാർ ഇന്ന് പ്രഭാത നമസ്കാരത്തിന് ശേഷമാണ് അറഫയിലേക്ക് നീങ്ങിയത് സൂര്യാസ്തമയം വരെ അവർ പ്രാർഥനാ നിരതരായി അറഫയിൽ കഴിഞ്ഞുകുടും നമിറ പള്ളിയിൽ പണ്ഡിത സഭാംഗവും റോയൽ കോർട്ട് ഉപദേഷ്ടാവുമായ ശൈഖ് അബ്ദുല്ല ബിൻ സുലൈമാൻ അൽമനീഇന്റെ പ്രഭാഷണത്തോടെ അറഫാ സംഗമത്തിന് തുടക്കമാകും അറഫ സംഗമത്തിന് ശേഷം മുസ്ദലിഫയിലേക്കാണ് പോവുന്ന ഹാജിമാർ അവിടെ രാപ്പാർത്ത ശേഷം മിനായിൽ തിരിച്ചെത്തും പിന്നീട് ജംറകളിലെ ആദ്യ ദിന കല്ലേറ് കർമം പൂർത്തീകരിക്കും കൊവിഡ് പ്രതിസന്ധി കാരണം ആയിരം തീർഥാടകർ മാത്രമാണ് ഇത്തവണ ഹജ്ജ് കർമങ്ങളിൽ പങ്കെടുക്കുന്നത് ഇബ്റാംഹീം നബിയുടെ ത്യാഗസ്മരണകൾ അയവിറക്കി സംസ്ഥാനത്തും വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും

വടക്കൻ കേരളത്തിലാണ് ഇന്ന് ശക്തമായ മഴ ലഭിക്കുന്നത് മഴയിൽ റോഡിൽ വെള്ളം കയറിയും മരങ്ങൾ വീണും പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

കഴിഞ്ഞദിവസം പെയ്ത ശക്തമായ മഴയിൽ തൊട്ടിൽപ്പാലം പുഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ചോയ്ച്ചുണ്ട് പ്രദേശത്തെ എട്ട് കുടുംബങ്ങളെ മാറ്റിമാർപ്പിച്ചിരുന്നു ഇന്ന് മഴക്ക് ശമനമായതോടെ പലരും വീടുകളിലേക്ക് മടങ്ങി രുമ ജലജീവൻ മിഷൻ പദ്ധതിയിൽ കാസർകോട് ജില്ലയിലെ ഗ്രാമീണ വീടുകളിൽ ശുദ്ധജലമെത്തിക്കും

രുമ ഓഹരി സൂചികകളിൽ നേരിയ നേട്ടത്തോടെ തുടക്കം

കൃഷ്ണപിള്ള സ്മാരകത്തിന് തീയിട്ട് കൃഷ്ണ പിള്ളയുടെ പ്രതിമ കേട് വരുത്തിയ കേസിലെ എല്ലാ പ്രതികളെയും ആലപ്പുഴ സെഷൻസ് കോടതി വെറുതെ വിട്ടു

എഫ് ഐ മുൻ നേതാവും കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറിയുമായ ലതീഷ് ബി